കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം

ഇന്ധനവിലവർദ്ധനക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭാരത്ബന്ദ് പുരോഗമിക്കുന്നു

മഹാ ത്മാഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയശേഷമാണ് രാഹുൽഗാന്ധി അടക്കം നേതാക്കൾ വിലക്കയറ്റ വിരുദ്ധ പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തിയത് ഡൽഹി രാംലീല് മൈതാനത്തേക്കാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധ മാർച്ചും നടത്തി ന്യൂഡൽഹിയിൽ പെട്രോൾ പമ്പിനുമുന്നിൽ കോൺഗ്രസ് ഉപരോധസമർം സംഘടിപ്പിച്ചു

എ അധ്യക്ഷ സോണിയാഗാന്ധി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോ ഹൻസിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തുടങ്ങിയവർ ഉപ രോധത്തിൽ പങ്കെടുത്തു പ്രതിപക്ഷപാർട്ടികളുടെ സഖ്യം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്തുമെന്ന് ഉപ രോധത്തിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്ത രാഹുൽഗാന്ധി പറഞ്ഞു ഇന്ധനവില കുതിച്ചുയരുമ്പോൾ നരേന്ദ്രമോദി മൌനം പാലി ക്കുകയാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ബിജെപിയെ പ്രതിപക്ഷം ഒറ്റ ക്കെട്ടായി നേരിട്ട് ഭരണത്തിൽനിന്ന് ഇറക്കുമെന്നും രാഹുൽഗാന്ധി പറ് ഞ്ഞു രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ നിരവധി നടപടികളാണ് മോദി ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് ഡോ മൻമോഹൻസിംഗ് കുറ്റപ്പെടുത്തി പലസംസ്ഥാനങ്ങളിലും ബന്ദ് അനുകൂലികൾ ട്രെയിനുകളും റോഡുഗ താഗതവും തടസ്സപ്പെടുത്തി ബീഹാർ അടക്കം സംസ്ഥാനങ്ങളിൽ വാഹ നങ്ങൾക്കുനേരെ വ്യാപകമായ കയ്യേറ്റ ശ്രമങ്ങളും നടന്നു ഇന്ധന വിലവർദ്ധനവിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരളത്തിൽ എൽ

എഫും യു ഡി

ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാരപരമായി പുരോഗമിക്കുക യാണ്

എസ് ആർ ടി സിയും സ്ഥകാര്യ ബസുകളും സർവ്വീസ് നട ത്തുന്നില്ല നഗരപ്രദേശങ്ങളിൽ കടകൾ മിക്കതും അടഞ്ഞുകിടക്കുകയാ ണ് സ്വകാര്യവാഹനങ്ങൾ ഓടുന്നുണ്ട് ഓഫീസുകളിൽ ഹാജർനില കുറ വാണ് പ്രളയബാധിത മേഖലകളെയും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങളെ യും ഹർത്താലിൽനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കൊല്ലം പത്തനാപുരത്തിനുസമീപം സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഷാഹിദാ കമാൽ സഞ്ചരിച്ച വാഹനത്തിനുനേരെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തി വാഹനം തടഞ്ഞുനിർത്തിയ സമരക്കാർ തന്നെയും ഡ്രൈവറെയും മർദ്ദിച്ചതായി ഷാഹിദാ കമാൽ പരാതിപ്പെട്ടു

ഡി എഫിന്റെ നേതൃത്വത്തിൽ കാളവണ്ടി പ്രതിഷേധം നടന്നു പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഗവൺമെന്റ് വിലവർദ്ധിപ്പിക്കുന്നതിലൂടെ ജനങ്ങളെ ക്രൂര മായി ചൂഷണം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ആഹ്വാനം ചെയ്ത ബന്ദ് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാനും ജനങ്ങളിൽ ആശയകുഴപ്പം ഉണ്ടാ ക്കാനും ഉദ്ദേശിച്ചാണെന്ന് കേന്ദ്രമന്ത്രി മുക്തർ അബ്ബാസ് നഖ്വി കുറ്റപ്പെ ടുത്തി ബന്ദിന്റെ പേരിൽ കോൺഗ്രസും മറ്റ് പാർട്ടികളും രൂപീകരിച്ച മഹാ സഖ്യമെന്ന ബലൂൺ ജനങ്ങൾ തന്നെ പൊട്ടിക്കുമെന്ന് അദ്ദേഹം ഡൽഹി യിൽ പറഞ്ഞു അധികാരത്തിലിരുന്ന കാലത്ത് വിലക്കയറ്റത്തിന്റെ കാര്യ ത്തിൽ ചരിത്രം കുറിച്ച കോൺഗ്രസ് ഇപ്പോൾ അതേപേരിൽ മുതലക്ക ണ്ണീരൊഴുക്കുകയാണെന്നും നഖ്വി പറഞ്ഞു കേരളത്തിലെ പ്രളയ നാശനഷ്ടത്തിന്റെ കണക്ക് സമർപ്പിച്ചാൽ കൂടു തൽ കേന്ദ്രസഹായം ലഭ്യമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ അറിയിച്ചു ബിജെപി സ്ംസ്ഥാന ഘടകത്തിനാണ് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചത്

തംഗസംഘം എട്ടായി തിരിഞ്ഞ് പ്രളയബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും

സംസ്ഥാന ഗവൺമെന്റിന്റെ ്രനിർദ്ദേശമനു സരിച്ചായിരിക്കും സംഘത്തിന്റെ സന്ദർശനം ലോകബാങ്ക് സംഘത്തിന് സന്ദർശനം നടത്താൻ കേന്ദ്രഗ് വൺമെന്റ് നേരത്തേ അനുമതി നൽകിയിരുന്നു

പ്രളയത്തിൽ തകർന്ന സംസ്ഥാനത്തെ പുനർ നിർമ്മിക്കുന്നതിന് ഗവൺമെന്റിന്റെ ജില്ലാതല ധനസമാഹരണ യജ്ഞം നാളെ ആരംഭിക്കും

വിദ്യാർത്ഥികളുടെ സംഭാവന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി നാളെയും മറ്റന്നാളുമായി സമാ ഹരിക്കും കഴിയാവുന്ന തുക നൽകി കുട്ടികൾ യജ്ഞത്തിൽ പങ്കാളിക ളാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞദിവസം അഭ്യർത്ഥി ച്ചിരുന്നു ദുരിതാശ്വാസത്തിന്റെ പേരിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സി

എം പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് വി

സതീശൻ എംഎൽഎ ആവശൃപ്പെട്ടു ദുരിതാശ്ചാസ പ്രവർത്തന ങ്ങൾ സി

എം

പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ട് ഈ നീക്കം തടയണ മെന്നും അദ്ദേഹം പറവൂരിൽ ആവശ്യമുന്നയിച്ചു പരാതിക്കാരിയായ ഡി

എഫ്

പ്രവർത്തക സമ്മതിച്ചാൽ പി

ശശി എം

എ ക്കെതിരായ പീഡന പ്രാതി പൊലീസിന് കൈമാ റാമെന്ന് സി

എം പൊളിറ്റ് ബ്യൂറോ അംഗം എം

സത്രീപീഡകർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും ബേബി ഫേസ്ബുക്ക് പോസ്റ്റിൽ വൃക്തമാക്കി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ജോയിന്റ് ക്രിസ്റ്റ്യൻ കൌൺസിലിന്റെ പ്രതിഷേധ സമരം കൊച്ചിയിൽ മൂന്നാം ദിവസവും തുടരുന്നു കന്യാസ്ത്രീയെ പീഡിപ്പിച്ച ബിഷപ്പിനെ അറസ്റ് ചെയ്ത് നിയമനടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതി ജംഗ്ഷനിൽ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സമരം അതിനിട്ടെ നാളെ ഈ ആവശ്യം ഉന്നയിച്ച് പീഡനത്തിന് ഇര യായ കന്യാസ്ത്രീ ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡന പരാതി യിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു ജലന്ധർ ബിഷപ്പിനെതിരായ കേസ് അട്ടിമറിക്കുന്നുവെന്ന പരാതിയിൽ സംസ്ഥാന ന്യൂനപക്ഷകമ്മീഷൻ പൊലീസിൽനിന്ന് വിശദീകരണം തേടി സംസ്ഥാന പൊലീസ് മേധാവിയും ഐജിയും പരാതിയെപ്പറ്റി റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശം നൽകി ജലന്ധർ ബിഷപ്പിനെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ വൈകിക്കുന്നത് നീതി ന്യായ വ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുമെന്ന് ഭരണപ രിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി

പീഡനത്തിനിരയായ കന്യാസ്ത്രീയെ നിരന്തരം ചോദ്യം ചെയ്യു കയും സമ്മർദ്ദത്തിനിരയാക്കുകയും ചെയ്യുമ്പോൾതന്നെ കുറ്റാരോപിതർ അധികാരത്തിന്റേയും സ്വാധീനത്തിന്റേയും സുരക്ഷിതത്വത്തിൽ കഴിയു ന്നത് ജനങ്ങൾക്കു നൽകുന്ന സന്ദേശം ഒട്ടും ഗുണകരമല്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ഹർജി ഇന്നു തന്നെ അടിയന്തിര പ്രാധാനൃത്തോടെ പരിഗണിക്കൺമെന്നാവശ്യത്തിൽ ഹൈക്കോടതി ഉച്ചകഴിഞ്ഞ് തീരുമാനമെടുക്കും കന്യാസ്ത്രീയെ അധിക്ഷേപിച്ച പി

ജോർജ്ജിനെതിരെ പൊലീ സിന് നേരിട്ട് കേസെടുക്കാനാവില്ലെന്ന് കോട്ടയം ജില്ലാ പൊലീസ് മേധാ വി ഹരിശങ്കർ അറിയിച്ചു

വിവാദ പ്രസ്താവനയുടെ ദൃശ്യം പരിശോധിച്ച് സംസ്ഥാന പൊലീസ് മേധാവിയെ നിലപാട് അറിയിക്കുമെന്നും എസ്

വ്യക്തമാക്കി ഇറച്ചികോഴി ലഭ്യതയിൽ സ്വയംപര്യാപ്തത കൈവരിക്കാൻ അടുക്ക ളമുറ്റത്തെ ബ്രോയിലർകൃഷി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എടപ്പാളിൽ മന്ത്രി കെ

ജലീൽ നിർവ്വഹിച്ചു സ്ത്രീ ശാസ്തീകരണ ത്തിലൂടെ ഭക്ഷ്യസുരക്ഷാ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന ഗവൺമെന്റ് കുടുംബശ്രീയിലൂടെ മൃഗസംരക്ഷണവകുപ്പുമായി സഹകരിച്ച് നടപ്പാ ക്കുന്ന പദ്ധതിയാണിത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലൈസൻസ് ലഭിക്കുന്ന തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലെത്തി വ്യോമ യാന മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ അവസാ നവട്ട പരിശോധനകൾക്കായി ഉദ്യോഗസ്ഥസംഘം അടുത്ത ആഴ്ച വിമാ നത്താവളത്തിൽ എത്തും അതിനിടെ കാലാവസ്ഥാ വ്യതിയാനം മനസി ലാക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിച്ചു തുടങ്ങി

ഡി

ബാങ്ക് വൈസ് പ്രസിഡന്റ് സിദ്ധാർഥ് കിരൺ സാംഗ്വിയുടെ മൃതദേഹം നഗരത്തിൽ കണ്ടെത്തി കല്ല്യാണിനുസ മീപത്തു നിന്നാണ് മൃത ദേഹം വീണ്ടെടുത്തത്

സഹപ്രവർത്തകർ ഉൾപ്പെടെ മൂന്നുപേരെയും കസ്റ്റ ഡിയിലെടുത്തിട്ടുണ്ട് സിദ്ധാർഥിന്റെ ജോലിക്കയറ്റവുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകർ കൊട്ടേഷൻ നൽകി കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാണ് നിഗമനം സിദ്ധാർഥിന്റെ കാർ കഴിഞ്ഞ ദിവസം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നഗരത്തിൽ കണ്ടെത്തിയിരുന്നു വ്യോമഗതാഗത്തിൽ ഇടിമിന്നൽ രക്ഷാചാലകത്തിന്റെ പ്രധാന്യം ചർച്ച ചെയ്യുന്ന രണ്ടു ദിവസത്തെ ദേശീയ ശിൽപശാല രാമനാട്ടുകര യിൽ തുടങ്ങി എയർപോർട്ട് അതോറിട്ടിയിലെ കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ സർവെയിലൻസ് വിഭാഗമാണ് ശിൽപശാല സംഘടിപ്പിക്കു ന്നത് എയർപോർട്ട് ഡയറക്ടർ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന സാങ്കേ തിക വിദഗ്ധർ പങ്കെടുക്കുന്നു യശ്ചന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിന്റെ സമയമാറ്റം പിൻവലിക്കണ മെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു ബംഗളുരുവിൽ നിന്ന് മംഗളുരുവിലേക്ക് പാലക്കാട് വഴി സർവീസ് നടത്തുന്ന ഏക ട്രെയിൻ വൈകിപ്പിക്കുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതായി സതേൺ റെയിൽവ ജനറൽ മാനേജർക്കയച്ച കത്തിൽ എം

രാഘവൻ പറഞ്ഞു പെരിന്തൽമണ്ണ നഗരത്തിലെ ട്രാഫിക് ക്രമീകരണത്തെക്കുറിച്ച് പഠനം നടത്താൻ പ്രത്യേക സമിതിയെ നിയമിച്ചു പെരിന്തൽമണ്ണ സി ഐ കൺവീനറായ സ്രമിതി ഒരുമാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും

മന്ത്രി ടി